ബിൽ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അനീതി ഇല്ലാതാക്കുന്ന ബില്ലാണിതെന്നും കാലങ്ങളായി ദുരിത ം അനുഭവിക്കുന്നവരെ സഹായിക്കാനാണെന്നും അമിത് ഷാ ബിൽ അവതരണ വേളയിൽ പറഞ്ഞു ബില്ലിൻ മേൽ നാല് ഭേദഗതി നിർദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ എം വെങ്കയ്യ നായിഡു അറിയിച്ചു ഭേദഗതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് കെ കെ രാകേഷ് ബിനോയ് വിശ്വം എളമരം കരീം എന്നിവർ അറിയിച്ചു ലോക്സഭ തിങ്കളാഴ്ചയാണ് പൌരത്വ ഭേദഗതി ബിൽ പാസാ ക്കിയത് രാജ്യസഭയിലും ബിൽ പാസാകുമെന്ന് ഉറപ്പുണ്ടെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ജി എസ് ടി നഷ്ടപരിഹാരം സംബ ന്ധിച്ചായിരുന്നു ബഹളം

അയൽ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നു മതപരമായ വിവേചനം ഇതോടെ ഇല്ലാതാകു മെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് പൌരത്വ അവകാശവും മറ്റ് സൌകര്യങ്ങളും ലഭിക്കാതെ താമസിക്കുന്ന ജനങ്ങളുടെ അനി ശ്ചിതാവസ്ഥ ഈ നിയമനിർമാണത്തോടെ ഇല്ലാതെയാകുമെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി പറ ഞ്ഞതായി പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗ ത്തിനു ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ അറിയി ച്ചു പൌരത്വ ഭേദഗതി ബില്ലിന് രാജ്യസഭയിൽ പിന്തുണ പ്രതീ ക്ഷിക്കും മുമ്പ് ഗവൺമെന്റ് തങ്ങളുന്നയിച്ച ചോദ്യങ്ങൾക്ക് മറു പടി പറയണമെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് ഡൽഹിയിൽ ആവശ്യപ്പെട്ടു രാജ്യസഭയിലെ സ്ഥിതി ലോക്സഭ യിൽ നിന്ന് വൃത്യസ്തമാണെന്ന് അദ്ദേഹം അറിയിച്ചു ലോക്സ ഭയിൽ ശിവസേന ബില്ലിനെ പിന്തുണച്ചിരുന്നു അതേസമയം രാജ്യസഭയിൽ പിന്തുണ ഉപാധികൾക്ക് വിധേ മായിരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു

എസ്

രാജ്യത്തിന്റെ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാൻ സൈനിക സേവനത്തിനും കൃഷി വനം ദുരന്തനിവാരണം തുട ങ്ങിയ മേഖലകളിലും ഉപഗ്രഹം പ്രയോജനപ്പെടുത്തും

ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേ ഷൻസ് വകുപ്പിന്റെ ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ കേരളയ്ക്ക് സാധിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു റേഡിയോ കേരളയുടെയും പി ആർ ഡിയുടെ നവീകരിച്ച വെബ് പോർട്ടലിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നടിയെ ആക്രമിച്ച കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ആവശ്യ പ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി കൊച്ചിയിലെ വിചാരണ കോടതി തള്ളി കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ദിലീപിന് ഒരി ക്കലും കൈമാറാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി സാക്ഷിക ളിൽ നിന്നും പ്രതികളിൽ നിന്നുമടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച തെളിവുകളുടെ പകർപ്പാണ് ദിലീപ് ആവശ്യപ്പെട്ടിരു ന്നത് ഇത് ദിലീപിന് കൈമാറുന്നത് സാക്ഷികളെയടക്കം സ്വാധീ നിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും ഇടയാക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ഈ വാദം അംഗീകരി ച്ചാണ് കോടതി ദിലീപിന്റെ ഹർജി തള്ളിയത് നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി നേരത്തെ സുപ്രീംകോടതിയും തള്ളിയിരുന്നു ഉള്ളി വില വർധന തടയാൻ ഹൈക്കോടതി ഇടപെടണമെന്നാ വശ്യപ്പെട്ട് അഭിഭാഷകൻ മനുറോയി സമർപ്പിച്ച പൊതുതാത്പര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വിലവർധന തടയാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കർശന നിർദേശം നൽക ണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി

മുഖ്യമന്ത്രി പിണ റായി വിജയന് സിയാൽ മാനേജിങ് ഡയറക്ടർ വി ജെ കുര്യൻ ലാഭവിഹിതത്തിന്റെ ചെക്ക് തിരു വനന്തപുരത്ത് കൈമാറി

കയർ ഫാക്ടറി മേഖലയിലെ ക്രിസ്മസ് അഡ്വാൻസ് ബോണസ് സംബന്ധിച്ച് ധാരണയായി

സഹകരണ പൊതുമേഖലാ സ്ഥാപന ങ്ങളിലെ തൊഴിലാളികൾക്കും ഈ വൃവസ്ഥകൾ ബാധകമാകു മെന്ന് തിരുവനന്തപുരത്ത് ലേബർ കമ്മിഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വ്യക്തമാക്കി സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി ഡോ

കേന്ദ്രം ജി എസ് ടി നഷ്ടപ രിഹാരം നൽകാത്തതാണ് പ്രശ്നങ്ങൾക്കു കാരണം എന്നാൽ ക്ഷേമപ്രവർത്തനങ്ങളെ പ്രതിസന്ധി ബാധിക്കില്ലെന്നും മന്ത്രി പറ ഞ്ഞു

സാമ്പത്തിക പ്രതിസന്ധിക്കു കാരണം ഗവൺമെന്റിന്റെ ധൂർത്തും പിടിപ്പുകേടുമാണെന്ന് ചെന്നിത്തല ആരോപിച്ചു

രാത്രി ഏഴിന് കളി ആരംഭിക്കും കഴിഞ്ഞ ആറിന് ഹൈദരാബാദിൽ നടന്ന മത്സര ത്തിൽ ഇന്ത്യ ആറു വിക്കറ്റിന് വിജയിച്ചപ്പോൾ എട്ടിന് തിരുവന ന്തപുരത്ത് വിൻഡീസ് എട്ട് വിക്കറ്റിന് ജയിച്ചു ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും നിർണ്ണായകമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഈവർഷത്തെ സംസ്ഥാന ഭിന്ന ശേഷി അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവ നന്തപുരത്ത് വിതരണം ചെയ്യും സംസ്ഥാനത്തിന് ലഭിച്ച ദേശീയ ഭിന്നശേഷി ശാക്തീകരണ അവാർഡ് മുഖ്യമന്ത്രി കേരളത്തിന് സമർപ്പിക്കും

മന്ത്രി ഇ പി ജയരാ ജൻ ഉദ്ഘാടനം ചെയ്യും

പട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നതെന്നും ഇതിലൂടെ അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നാലാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഐ എസ് ഒ പ്രഖ്യാപനം ലൈഫ് പി എം എ വൈ ഭവനങ്ങളുടെ താക്കോൽ ദാനം എന്നിവ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാർഖണ്ഡിൽ സഹപ്രവർത്തകന്റെ വെടിയേറ്റ് മരിച്ച മലയാളി അസിസ്റ്റന്റ് കമാൻഡന്റ് ഷാഹുൽ ഹർഷന്റെ മൃതദേഹം നാട്ടി ലെത്തിച്ചു സി ആർ പിഎഫ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റു വാങ്ങി കോഴിക്കോട് പുതുപ്പാടി മണൽവയലിൽ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർഥിക്ക് സ്കൂളിൽ വെച്ച് കണ്ണിന് പരുക്കേറ്റ സംഭവത്തിൽ ചികിത്സ ലഭിക്കാൻ വൈകിയതായ ആരോപണത്തിൽ ബാലവകാശ കമ്മിഷ്ടൻ ആശുപത്രിയിലെത്തി രക്ഷിതാക്കളുടേയു ഡോക്ടർ മാരുടേയും മൊഴിയെടുപ്പ് ആരം ഭിച്ചു തുടർന്ന് സ്കൂളിലെത്തി സ്കൂളിലെ അധ്യാപകരുടേയും വിദ്യാർഥി കളുടേയും മൊഴിരേഖപ്പെടുത്തും വിദ്യാർഥിയെ ഗുരുതര പരുക്കുകളോടെ കോഴിക്കോട്ടെ സ്ഥകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ കമ്മിഷൻ സ്വമേധായ കേസെടുത്തിട്ടുണ്ട് ഉദയംപേരൂർ കൊലക്കേസ് പ്രതികളായ കൊല്ലമറ്റം വീട്ടിൽ പ്രേംകുമാറിനെയും വെള്ളറട വാലൻവിള വീട്ടിൽ സുനിത ബേബിയെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പൊലീസ് ഇന്ന് കോട തിയെ സമീപിക്കും

പ്രേംകുമാറിന്റെ കൊല്ലപ്പെട്ട ഭാര്യ വിദ്യ യുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ പൊലീസ് ഇന്ന് ഫോറൻസിക് വിദഗ്ധരോട് അഭിപ്രായം തേടും സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും പൊലീസ് അന്വേഷിക്കും കേരള എൻ

സംഘ് നാൽപത്തി ഒന്നാം സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂരിൽ ആരംഭിക്കും പ്രതിനിധി സമ്മേളനം വനിത സമ്മേളനം സാംസ്കാരിക സമ്മേളനം യാത്രയയപ്പ് സമ്മേളനം പൊതുസമ്മേളനം എന്നിവ ഇതിന്റ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

റിയൽ അഡ്മിറൽ ആർ

എസ് ദ്രോണാചാ ര്യ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡൈവിങ് സ്കൂൾ എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു പൊന്നാനിയിൽ കവിമുറ്റം സാംസ്കാരിക വയോജന പാർക്ക് തുറന്നു കൊല്ലൻ പടിയിൽ നഗരസഭ ആരംഭിച്ച പാർക്ക് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉദ്ഘാടനം ചെയ്തു ഇടശ്ശേരി ഉറൂബ് കാവനാട് കുട്ടികൃഷ്ണൻ തുടങ്ങിയ അക്ഷര പ്രതിഭകളുടെ പേരിലാണ് പാർക്ക് അറിയപ്പെടുന്നത് പാർക്കിൽ ഇവരുടെ അർദ്ധകായ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്

ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു

പി വിഭാഗം അധ്യാപകനെ സർവ്വീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെ നടപടികൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് കോഴിക്കോട്ട് പറഞ്ഞു മാധ്യമവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു